കോഴിക്കോട് ജില്ല യിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ സംഘം സന്ദർശി ക്കും

കന്യാസ്ത്രീ പീഡനക്കേസിൽ ബിഷപ് ഫ്രാങ്കോ മുള യ്ക്കലിനെ മൂന്നാം ദിവസവും ചോദ്യം ചെയ്യുന്നു

എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം തിരു വനന്തപുരത്ത് തുടങ്ങി

ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോർ റൌണ്ടിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി എ

ധർമ്മ റെഡ്ഡി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാ ലയം ജോയിന്റ് സെക്രട്ടറി ധരംവീർ ഝാ എന്നിവരാണ് സംഘത്തിലുള്ളത് ഉരുൾപൊട്ടലുണ്ടായ കരിഞ്ചോല കണ്ണ പ്പൻകുണ്ട് കൂടരഞ്ഞി തിരുവമ്പാടി വയനാട് ചുരം എന്നി വിടങ്ങളിൽ സംഘം സന്ദർശിക്കും രാവിലെ ജില്ലാ കലക്ടർ യു വി ജോസുമായി കൂടിക്കാഴ്ച നടത്തിയശേഷമായിരുന്നു സന്ദർശനം എറണാകുളം ജില്ലയിൽ പറവൂർ ആലുവ താലൂക്കുകളി ലാണ് സംഘം സന്ദർശിക്കുന്നത് നാശനഷ്ടം സംബന്ധിച്ച വിശദാംശങ്ങൾ ജില്ലാ കലക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള സംഘത്തെ ധരിപ്പിച്ചു മുതിർന്ന റവന്യൂ ജില്ലാതല ഉദ്യോഗ സ്ഥരും സംഘത്തോടൊപ്പമുണ്ട് മഴക്കെടുതിയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം നാളെ കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തും മഴക്കെടുതി കൂടുതലുണ്ടായ ഇരിട്ടി തളി പ്പറമ്പ് താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കും

ജില്ലാ കലക്ടർ പി ബി നൂഹുമായി കൂടിക്കാഴ്ച നടത്തിയശേഷം സംഘം പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും നവകേരള നിർമ്മിതിക്ക് അമേരിക്കൻ മലയാളികൾ മുന്നോ ട്ടുവരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു

കേരളത്തിൽ ഗവൺമെന്റ് ജീവന ക്കാർ നടപ്പാക്കിയ സാലറി ചലഞ്ച് ഏറ്റെടുക്കാൻ അമേരിക്ക യിലെ മലയാളികളും തയ്യാറാകണം രാജ്യാന്തരതലത്തിലെ ഫണ്ട് സമാഹരണത്തിന് മൂന്നുമാസത്തിനകം ധനദാതാക്കളുടെ യോഗം വിളിക്കു മെന്നും അദ്ദേഹം ന്യൂയോർക്കിലെ റോക്ക്ലാന്റ് കൌണ്ടിയിൽ അമേരിക്കൻ മലയാളികളെ അറി യിച്ചു പ്രത്യേക വെബ് പോർട്ടൽ തുടങ്ങി സ്പോൺസർഷിപ്പ് അടക്കം സഹായ നടപടികൾ നേടാൻ ശ്രമിക്കുമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു

പ്രളയക്കെടുതി നേരിടുന്ന കേരളത്തിന്റെ പുനർ നിർമ്മാ ണത്തിനായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജി

ടിക്ക് മേൽ സെസ് ചുമത്തി പണം കണ്ടെത്താമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു പുകയില ഉൾപ്പെട്ടെ ചില ഉത്പ ന്നങ്ങൾക്കുമേൽ മാത്രം നിശ്ചിത കാലത്തേക്ക് ദുരിതാശ്ചാസ സെസ് ചുമത്തി സംസ്ഥാനത്തെ സഹായിക്കാമെന്നാണ് ധാര ണ

ടി കൌൺസിൽ യോഗ ത്തിന്റെ പരിഗണനയ്ക്ക് വിടും കന്യാസ്ത്രീ പീഡനക്കേസിൽ ജലന്ധർ ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെ തുടർച്ചയായ മൂന്നാം ദിവസവും പ്രത്യേക അന്വേഷണസംഘം ചോദ്യം ചെയ്യുന്നു തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് എസ്

കന്യാസ്ത്രീയും ബിഷപ്പും നൽകിയ മൊഴികൾ വിശദമായി പരിശോധിച്ച് അന്തിമ നിഗമനത്തിലെത്താനാണ് പൊലീസ് ശ്രമിക്കുന്നത് കുറവിലങ്ങാട്ടെ മഠത്തിലെത്തി പൊലീസ് കന്യാസ്ത്രീയിൽനിന്നും വീണ്ടും മൊഴിയെടു ത്തതായി റിപ്പോർട്ടുണ്ട്

അതിനിടെ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിന് പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം തുടരുക യാണ് ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന പരാതി യിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മന്ത്രി ഇ

ഇരയോടൊപ്പമാണ് ഗ്വൺമെന്റെന്നും തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു കന്യാസ്ത്രീയുടെ പരാതിയിൽ ജലന്ധർ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പൊലീസാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ കന്യാസ്ത്രീകൾക്കോ മറ്റാർക്കെങ്കിലുമോ അവകാശമില്ലെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു കന്യാസ്ത്രീകളുടെ സമരത്തിന് എതിരല്ല സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണന്റെ പ്രസ്താവനയെന്നും വിഷയം രാഷ്ട്രീയവൽക്കരി ക്കുന്നതിനെയാണ് അദ്ദേഹം എതിർത്തതെന്നും കടകംപള്ളി വൃക്തമാക്കി

എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരു വനന്തപുരത്ത് തുടങ്ങി

കെ ശശി എം

എ ക്കെതിരായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടി കമ്മീ ഷന്റെ അന്വേഷണ പുരോഗതി യോഗത്തിൽ ചർച്ചയായേക്കും

എം സംസ്ഥാന കമ്മിറ്റി ചേരും

ഒരു വ്യക്തിക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നായി വ്യത്യസ്ത ലൈസൻസുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതി നാണ് ഡേറ്റാ ബെയ്സ് രൂപീകരിക്കു ന്ന തെന്ന് മന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൂന്ന് പൊലീസ് ഉദ്യോഗസ്ഥരെ ഭീകരവാദികൾ വധിച്ചതായി പൊലീസ് കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറിയിച്ചു

ഇവരുടെ മൃതദേഹങ്ങൾ വാൻഗാം പ്രദേ ശത്തെ കുറ്റിക്കാട്ടിൽനിന്ന് കണ്ടെടുത്തു ഗ്രാമവാസികൾ ഭീകര പ്രവർത്തകരെ പിന്തുടർന്ന് പൊലീസുകാരെ മോചിപ്പിക്കണമെന്ന് ആവശൃപ്പെട്ടെങ്കിലും അവർ ആകാശത്തേക്ക് വെടിവെച്ച് ആൾക്കാരെ വിരട്ടിയോടിക്കുകയായിരുന്നു

ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തി ട്ടുണ്ട് സംസ്ഥാനത്ത് പെട്രോളിന് ഇന്നും വില കൂടി

രാവിലെ ചിന്മ യമിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ ശിവ ഗിരിയിൽ മഹാസമാധി നവതി ആചരണം ഉദ്ഘാടനം ചെയ്തു ചെമ്പഴന്തിയിൽ മഹാസമാധി ദിനാചരണം മന്ത്രി ഇ പി ജയ രാജൻ ഉദ്ഘാടനം ചെയ്തു അരുവിപ്പുറം ക്ഷേത്രത്തിലും ആലുവ അദ്വൈതാശ്രമത്തിലും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും ഉപവാസ യജ്ഞവും പ്രാർത്ഥനകളും നടന്നു ആലപ്പുഴയിൽ എസ്

പി യോഗത്തിന്റെയും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ മൌന ജാഥ അന്നദാനം സർവ്വമത സമ്മേളനം തുടങ്ങിയ പരിപാടി കൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോർ റൌണ്ടിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് കളിയും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർഫോറിലെ ആദ്യമത്സരത്തിനിറങ്ങു ന്നത് പാക്കിസ്ഥാനെതിരായ തകർപ്പൻ ജയത്തിന്റെ ആത്മവി ശ്വാസത്തിലാണ് ഇന്ത്യ ദുബായിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സരം സൂപ്പർ ഫോറിലെ മറ്റൊരു മത്സരത്തിൽ പാക്കി സ്ഥാനും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടും

ബീജിങ്ങിൽ ച്ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും കിടംബി ശ്രീകാന്തും കാർട്ടർ ഫൈനലിൽ കടന്നു തായ്ലന്റ് താരങ്ങളെയാണ് ഇരുവരും പരാജയപ്പെടു ത്തിയത് ഏഷ്യൻ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടു ക്കാൻ ഇന്ത്യൻ ടീമംഗങ്ങൾ തിരുവനന്തപുരത്ത് എത്തിത്തുട ങ്ങി

പത്തിലധികം രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെ ടുക്കും

സദാശിവം നിർവഹിക്കും അന്തരിച്ച നടനും സംവിധായകനുമായ ക്യാപ്റ്റൻ രാജുവിന്റെ സംസ്കാരം വൈകിട്ട് പത്തനംതിട്ട ഓമല്ലൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഉച്ചയ്ക്കുശേഷം മൃതദേഹം ഓമല്ലൂരിൽ പൊതുദർശനത്തിനുവെയ്ക്കും രാവിലെ എറണാ കുളം നോർത്ത് ടൌൺ ഹാളിൽ പൊതുദർശ്നത്തിനുവെച്ച മൃത ദേഹത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു

എഫ് കൺവീനർ ബെന്നി ബഹനാൻ ഇന്നസെന്റ് എം പി സുരേഷ് ഗോപി എം പി തുടങ്ങി നിർവധി പേർ അന്തിമോപ ചാരം അർപ്പിച്ചു മലപ്പുറം പാണമ്പ്ര ദേശീയപാതയിൽ മറിഞ്ഞ പാചകവാ തക ടാങ്കറിലെ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിനിറയ്ക്കു കയാണ്

സ്ഥലത്തെ വൈദ്യുതി ബന്ധം വിച്ചേദിച്ചിട്ടുണ്ട് അരക്കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് പുലർച്ചെ മൂന്നോടെയായിരുന്നു അപ കടം പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സേവാപ്രവർത്തകരുടെ സംഗമവും പ്രളയത്തിൽ മരിച്ച വർക്കായി അനുസ്മരണ സമ്മേളനവും മറ്റന്നാൾ രാവിലെ കണ്ണൂർ സാധു കല്ല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിക്കുമെന്ന് സേവാഭാരതി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു സുരേഷ്ഗോപി എം പി ഉദ്ഘാടനം ചെയ്യും ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്നവർക്കായി നിർമ്മിച്ച് നൽകുന്ന പുതിയ വീടിന്റെ നാളെ വൈകിട്ട് നടക്കുന്ന ശിലാന്യാസ ചട ങ്ങിലും സുരേഷ് ഗോപി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

എയുടെ പേഴ്സണൽ സ്റ്റാഫെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി യുവാവ് മുങ്ങിയതായി പരാതി പത്തനംതിട്ട ആറാട്ടുപുഴ സ്വദേശി ബിജോ മാത്യുവാണ് ആറന്മുള എം

കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടുദിവസത്തെ നാടക പരിശീലന ക്യാമ്പ് നാളെ കണ്ണൂർ മാലൂരിൽ ആരംഭിക്കും ന്യൂ പനമ്പറ്റ യു പി സ്കൂളിൽ നാട്ടകം കൃാമ്പ് അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരീക്ഷണ പറ ക്കൽ ഇന്നും നടക്കും

ഇന്നലെ എയർ ഇന്ത്യയുടെ വിമാനം പരീക്ഷണപ്പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി പത്തിന് നടയടയ്ക്കും